ത ജനിതക വ്യതിയാനം സംഭവിച്ച കൊറോണ വൈറസുകളാണ് കേരളത്തിൽ കോവിഡിന് കാരണമാകുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ

ത മൂന്ന് കാർഷിക ബില്ലുകൾ ഇന്ന് രാജ്യസഭയിൽ

പിമാർക്ക് ബി ജെ പി വിപ്പ് നൽകി ത കേരളത്തിൽ ഇന്ന് അതി തീവ്ര മഴയ്ക്ക് സാധ്യത

വാർത്തകൾ വിശദമായി നികുതി ചുമത്തലും അനുബന്ധ നിയമങ്ങളും സംബന്ധിച്ച ഭേദഗതി ബിൽ ലോക്സഭ പാസ്സാക്കി ആദായ നികുതി എക്സൈസ് കസ്റ്റംസ് നികുതി ബിനാമി സ്വത്ത് തടയൽ നിയമങ്ങളിൽ ഇളവുകൾ അനുവദിക്കുന്ന വ്യവസ്ഥകളാണ് ബില്ലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മാർച്ചിൽ പുറപ്പെടുവിച്ച ഓർഡിനൻസിന് പകരമായാണ് ബിൽ കൊണ്ടുവന്നത് കോൺഗ്രസ് ഡി എം കെ ടി എം സി ആർ

പി കക്ഷികൾ ബില്ലിനെ എതിർത്തു രുമ ജനിതക വ്യതിയാനം സംഭവിച്ച കൊറോണ വൈറസുകളാണ് കേരളത്തിൽ കോവിഡിന് കാരണമാകുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു വർദ്ധിച്ച വ്യാപനശേഷിയ്ക്ക് ഇവ കാരണമായേക്കും നേരിയ അലംഭാവം പോലും വലിയ ദുരന്തം ഉണ്ടാക്കാവുന്ന അവസ്ഥയിലാണ് കേരള സമൂഹമെന്നും അദ്ദേഹം വിലയിരുത്തി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടത്തിയ ജനിതക ശ്രേണീകരണത്തിലൂടെയാണ് ഇക്കാര്യം കണ്ടെത്തിയത് അയൽ സംസ്ഥാനങ്ങളിൽ രോഗവ്യാപനം ഗുരുതരമാകുന്ന സാഹചര്യം കേരളത്തിലും ആഘാതം സൃഷ്ടിച്ചേക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു പ്രതിരോധ നടപടികൾ കർശനമായി പാലിച്ച് എല്ലാവരും ഉത്തരവാദിത്വ ബോധത്തോടെ പെരുമാറണമെന്നും പിണറായി വിജയൻ ആവശ്യപ്പെട്ടു ദേശ സംസ്ഥാനത്ത് കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ ഏറ്റവും ഉയർന്ന പ്രതിദിന വർദ്ധന ഇന്നലെ ഉണ്ടായി

രുമ കോവിഡ് വ്യാപനത്തെത്തുടർന്ന് ഇടുക്കിയിലെ നെടുങ്കണ്ടം ടൌൺ പൂർണ്ണമായി അടച്ചു

ആയിരക്കണക്കിന് ആളുകളുമായി മത്സ്യ മൊത്ത വ്യാപാരിയ്ക്ക് സമ്പർക്കമുണ്ടെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ കുമളി എട്ടാം മൈൽ രാജാക്കാട് രാജകുമാരി പൂപ്പാറ ചെമ്മണ്ണാർ കമ്പംമേട് എന്നിവിടങ്ങളിലെല്ലാം ഇയാൾ എത്തിയിരുന്നതായി വിവരം ലഭിച്ചു നാൽപതോളം പേർ നിരീക്ഷണത്തിലാണ് രുഭ ഇടുക്കി മുട്ടം കോടതി സമുച്ചയത്തിന് സമീപത്തെ വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലിൽ തുടങ്ങുന്ന കോവിഡ് ഫസ്റ്റ്ലൈൻ ചികിത്സാ കേന്ദ്രത്തിൽ നാളെ മുതൽ രോഗികളെ പ്രവേശിപ്പിക്കുമെന്ന് അധികൃതർ അറിയിച്ചു

രമേ രാജ്യസഭയിൽ മൂന്ന് കാർഷിക ബില്ലുകൾ പരിഗണനയ്ക്ക് വരുന്ന ഇന്ന് എല്ലാ എം പിമാരും സഭയിൽ എത്തണമെന്ന് ബി ജെ

കാർഷികോല്പന്ന വ്യാപാര വാണിജ്യ പ്രോത്സാഹന ബിൽ കർഷക ശാക്തീകരണ സംരക്ഷണ കരാർ അവശ്യ സാധന ഭേദഗതി ബിൽ എന്നിവയാണ് രാജ്യസഭ പരിഗണിക്കുന്നത്

പ്രതിപക്ഷം ബില്ലിനെ എതിർക്കുന്ന പശ്ചാത്തലത്തിലാണ് ബി ജെ പി വിപ്പ് നൽകിയത്

രുമ കേരളത്തിൽ ഇന്ന് അതി തീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി

വോയ്സ് രുമ കോട്ടയം എറണാകുളം തൃശൂർ പാലക്കാട് കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ് ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടുന്നതിനാൽ കാലവർഷം ശക്തമാകുമെന്നും വരും ദിവസങ്ങളിൽ അതി തീവ്ര മഴ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നുമാണ് വിലയിരുത്തൽ ദുരന്ത മേഖലയിൽ കഴിയുന്നവരെ മുൻകരുതലിന്റെ ഭാഗമായി ക്യാമ്പുകളിലേക്ക് മാറ്റും

മൂന്നര മീറ്റർ വരെ ഉയരത്തിൽ തിരയടിക്കാനും സാധ്യതയുണ്ട്

ജില്ലയിൽ പ്രഖ്യാപിച്ച റെഡ് അലർട്ട് ഇന്നും തുടരും

രുഭ വയനാട് ബാണാസുര സാഗർ അണക്കെട്ടിൽ ജലനിരപ്പ് നാളെയോടെ പരമാവധിയിൽ എത്താൻ സാധ്യതയുണ്ടെന്നും ഉച്ചയ്ക്കുശേഷം ഡാമിന്റെ ഷട്ടറുകൾ തുറന്നേക്കുമെന്നും കെ എസ്

ബി അധികൃതർ അറിയിച്ചു രേര വൃഷ്ടി പ്രദേശങ്ങളിൽ മഴ കനത്തോടെ പാലക്കാട് പറമ്പിക്കുളം ഡാമിന്റെ രണ്ട് ഷട്ടറുകൾ ഉയർത്തി മംഗലം ഡാം കാഞ്ഞിരപ്പുഴ ശിരുവാണി ഡാമുകളുടെ ഷട്ടറുകളും ഉയർത്തിയിട്ടുണ്ട് ജലനിരപ്പ് ഉയർന്നാൽ പോത്തുണ്ടി മലമ്പുഴ ഡാമുകളും തുറക്കുമെന്ന് മുന്നറിയിപ്പുണ്ട്

കൂത്തുപറമ്പ് കുറ്റ്യാട്ടൂർ മേഖലകളിൽ വൻ തോതിൽ നെൽകൃഷി നശിച്ചു

ഇന്ന് വൈകിട്ട് ഏഴരയ്ക്ക് ദുബായ് ഇന്റർ നാഷണൽ സ്റ്റേഡിയത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് കിംഗ്സ് ഇലവൻ പഞ്ചാബിനെ നേരിടും

ദേദ കൊല്ലം കുണ്ടറയിൽ കേരളാ സെറാമിക്സിന്റെ നവീകരിച്ച പ്ലാന്റ് മറ്റന്നാൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും

രുമ പൊതുമരാമത്ത് വകുപ്പ് റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവിൽ ഉൾപ്പെടുത്തി ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിന്റെ നിർമ്മാണത്തിന് ടെണ്ടർ നടപടികൾ പൂർത്തിയാക്കിയതായി മന്ത്രി ജി സുധാകരൻ അറിയിച്ചു

രുമ ഇടുക്കി തോപ്രാംകുടി ഗവൺമെന്റ് ഹയർ സെക്കണ്ടറി സ്കൂളിന്റെ ഹൈടെക് മന്ദിരത്തിന്റെ നിർമ്മാണം മന്ത്രി എം

വികസന പ്രവർത്തനങ്ങളിൽ കക്ഷി രാഷ്ട്രീയം പാടില്ലെന്നും ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ പുരോഗതി എടുത്ത് പറയേണ്ടതാണെന്നും മന്ത്രി ചടങ്ങിൽ പറഞ്ഞു രംഭ കാസർകോട് ജില്ലയിലെ മടിക്കൈ ഗ്രാമപഞ്ചായത്തിൽ സാമൂഹ്യ ഗണിത പാഠശാലയായ മഞ്ചാടിക്കൂടാരം മന്ത്രി ഇ

രാജ്യത്തിന്റെ ഗണിത ശാസ്ത്ര പാരമ്പര്യത്തിൽ അഭിമാനിക്കുന്നതോടൊപ്പം കുട്ടികളിലെ ഗണിത പ്രതിഭ തിരിച്ചറിയാനും വളർത്താനും കഴിയണമെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു രദേ കോവിഡ് സാഹചര്യത്തിലും പൊതു വിദ്യാഭ്യാസ മേഖലയിൽ ഹൈടെക് ഓൺലൈൻ പഠന സൌകര്യമൊരുക്കി കേരളം മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയായിരിക്കുകയാണെന്ന് മന്ത്രി ജെ

കൊല്ലം മേലില ഗ്രാമപഞ്ചായത്തിൽ അംഗൻവാടികൾക്ക് ടി വി വിതരണം ചെയ്യുന്ന പദ്ധതിയും മുട്ടക്കോഴി വളർത്തൽ പദ്ധതിയും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി

ഈ തുക കണ്ടെത്താൻ സ്വകാര്യ മേഖലാ പങ്കാളിത്തം ഉൾപ്പെടെ വഴികൾ ആലോചിക്കേണ്ടി വരുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു കാസർകോട് മായിപ്പാടിയിൽ ഡയറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് നിർമ്മാണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി രുമ കോഴിക്കോട് ഈസ്റ്റ്ഹിൽ കേന്ദ്രീയ വിദ്യാലയത്തിന്റെ ശോചനീയാവസ്ഥ നേരിടുന്ന കെട്ടിടം പുനർ നിർമ്മിക്കാൻ അനുമതി ലഭ്യമാക്കിയതായി കേന്ദ്രമന്ത്രി രമേഷ് പൊക്രിയാൽ എം കെ രാഘവൻ എം

ഈസ്റ്റ്ഹിൽ കേന്ദ്രീയ വിദ്യാലയം ഉൾപ്പെടെ രാജ്യത്തെ ആറ് നിർമ്മാണ പദ്ധതികൾക്ക് അനുമതി നൽകിയതായും കേന്ദ്രമന്ത്രി ലോക്സഭയിൽ അറിയിച്ചു

ഡി എ ഗവൺമെന്റ് ഭരണം അഴിമതി രഹിതവും സുതാര്യവും എല്ലാവർക്കും നീതി ലഭ്യമാക്കുന്നതുമാണെന്ന് ബി

പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോ

രുമ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ മൃതദേഹങ്ങൾ മാറി നൽകിയ സംഭവത്തിൽ ആറ് താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിട്ടു ഒരു ജീവനക്കാരനെ സസ്പെൻഡ് ചെയ്തതായും ഡി